ഒമ്പത് പാർട്ടികൾ എതിർത്തു നാലുപാർട്ടി കൾ പിന്തുണച്ചു തായ്ലാന്റിലെ ഗുഹയിൽ കുടുങ്ങിയ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിന്

സമർപ്പിച്ച് പുനപരിശോധനാ ഹർജിയിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും ലോകകപ്പ് ഫുട്ബോളിലെ സെമി പോരാട്ടങ്ങൾ നാളെ ആരംഭിക്കും

ലോക്സഭാ നിയമസഭാ തെർഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തു ന്നത് സംബന്ധിച്ച് നിയമ കമ്മീഷൻ ന്യൂഡൽഹിയിൽ രണ്ടു ദിവസമായി നടത്തിയ കൂടിയാലോചനകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വൃതൃസ്ത നിലപാ ട്

ഭരണകക്ഷിയായ ബി ജെ പിയും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസും അഭിപ്രായം പ്രകടിപ്പിക്കാതെ മാറി നിന്നു തൃണമൂൽകോൺഗ്രസ് സി

എം സി

ഐ ഫോർവേർഡ് ബ്ലോക്ക് ജെ ഡി എസ് ആം ആദ്മി പാർട്ടി ഡി എം കെ തെലുഗുദേശം പാർട്ടി ഗോവ ഫോർവേർഡ് പാർട്ടി എന്നിവയാണ് ഒരേസമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ എതിർത്തത് അണ്ണാ ഡിഎംകെയും സമാജ്വാദി പാർട്ടിയും തെലങ്കാന രാഷ്ട്രസമിതിയും ശിരോമണി അകാലിദളുമാണ് നീക്കത്തെ പിന്തുണച്ചത് അഭിപ്രായമറിയി ക്കാൻ കൂടുതൽ സമയംവേണമെന്ന് ബി ജെ പി കമ്മീഷനോട് ആവശ്യപ്പെ ട്ടു അതേസമയം മറ്റു പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ച നടത്തിയശേ ഷമേ തീരുമാനമെടുക്കുകയുള്ളൂവെന്ന് കോൺഗ്രസ് അറിയിച്ചു തായ്ലന്റിലെ താം ലുവാങ് ഗുഹയിൽ കുടുങ്ങിയ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിന് രണ്ടാം ഘട്ട ദൌതൃം ഇന്ന് രാവിലെ ആരംഭിക്കും

പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടുപേരെ ഗുഹയിലെ സുര ക്ഷിത കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട്

പുറ ത്തെത്തിക്കുന്ന കുട്ടികൾക്ക് അടിയന്തര വൈദ്യസഹായം ലഭിക്കുന്നതിന് എല്ലാ സൌകര്യവും സജ്ജമാക്കിയിട്ടുണ്ട്

മഴ ശക്തമായതിനാൽ ഇവരെ ഗുഹ യിൽ നിന്ന് പുറത്തെത്തിക്കാൻ നാലുമാസമെങ്കിലും വേണ്ടിവരുമെന്നായി രുന്നു ആദ്യം കണക്കാക്കിയിരുന്നത് ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയും മേഘാ ലയ ഗവർണറും രാജ്യസഭാ ഉപാധ്യക്ഷനുമായിരുന്ന എം എം ജേക്കബിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പാലാ രാമപുരം സെന്റ് അഗസ്റ്റിൻസ് ഫൊറോന പള്ളിയിൽ നടക്കും വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷമായിരിക്കും സംസ്കാരം

രാമപുരത്തെ വസതിയിൽ പൊതുദർശനത്തിനുവെച്ച മൃതദേഹത്തിൽ പ്രമുഖ രാഷ്ട്രീയനേതാക്കൾ ഉൾപ്പെടെ ഒട്ടേറ്പേർ ആദ രാഞ്ജലി അർപ്പിച്ചു രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രിയായും ജലവിഭവത്തിന്റെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയായും നരസിംഹറാവു മന്ത്രിസഭയിൽ ആഭ്യന്തര സഹമന്ത്രിയും പ്രവർത്തിച്ചു

നിരവധി വർഷം എ ഐ സി സി അംഗമായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയുൾപ്പെടെ ഒട്ടേറെ നേതാക്കൾ ജേക്കബിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു കോൺഗ്രസ് കുടുംബത്തിന് ജേക്കബിന്റെ നിര്യാണം കനത്ത നഷ്ടമാണെന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു വിലമതിക്കാനാവാത്ത സേവനമാണ് രാഷ്ട്ര നിർമ്മാ ണത്തിൽ അദ്ദേഹം വഹിച്ചതെന്നും രാഹുൽഗാന്ധി പറഞ്ഞു

പ്രതികൾ സമർപ്പിച്ച പുനഃപരിശോധന ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബഞ്ചാണ് വിധി പറയുന്നത് കേസിലെ നാലു പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നെ ങ്കിലും ഒരാൾ പുനഃപരിശോധന ഹർജി സമർപ്പിച്ചിരുന്നില്ല

തിയും വിധിച്ചു വധശിക്ഷ സുപ്രീം കോടതി ശരിവെച്ചത് ഓർത്തഡോക്സ് സഭയിലെ ലൈംഗിക ചൂഷണ കേസിൽ പ്രതി കളായ നാലു വൈദികർ സമർപ്പിച്ച മുൻകൂർ ജാമൃഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഫാദർ എബ്രഹാം വർഗീസ് ഫാദർ ജോബ് മാത്യു ഫാദർ ജെയിസ് കെ ജോർജ്ജ് ഫാദർ ജോൺസൺ വി മാത്യു എന്നിവ രുടെ ഹർജികളാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത് മൂന്നു വൈദികരുടെ പേരിൽ ബലാത്സംഗത്തിനും ഒരാളുടെ പേരിൽ സ്ത്രീത്വത്തെ അപമാനിച്ച തിനുമാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നത്

നിയമം കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് നിയമവിരുദ്ധമാകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ചിട്ടി നടത്താൻ കേന്ദ്ര ചിട്ടി നിയമത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണെന്നും ഇതിനാ വശ്യമായ കാര്യങ്ങൾ സംസ്ഥാന നിയമസഭ തന്നെ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ റിസർവ് ബാങ്കുമായി ആലോചിച്ച് വൃവ സ്ഥകളിൽ ഇളവ് നൽകി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നും മാണി അഭി പ്രായപ്പെട്ടു ലോകകപ്പ് ഫുട്ബോളിലെ സെമി പോരാട്ടങ്ങൾ നാളെ തുടങ്ങും

ലാറ്റിനമേരി ക്കൻ കരുത്തരായ അർജന്റീനയെയും ഉറൂഗ്പേയെയും നാട്ടിലേക്ക് തിരിച്ച യച്ചാണ് ഫ്രാൻസ് സെമിയിൽ എത്തിയത് ആദ്യറൌണ്ടിൽ മുഴുവൻ കളി കളിലും ജയിച്ച ബൽജിയം കാർട്ടറിൽ കരുത്തരായ ബ്രസീലിനെ തോല്പി ച്ചാണ് സെമിയിൽ കടന്നത്

പ്രീ കാർട്ടറിൽ പെനാൽട്ടി ഷൂട്ടൌട്ടിൽ കൊളംബിയയെ കീഴടക്കിയ ഇംഗ്ലണ്ട് കാർട്ടറിൽ സ്വീഡനെ പിന്തള്ളിയാണ് സെമിയിലെത്തിയത് ഈ ലോകകപ്പിൽ കറുത്ത കുതിരകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ക്രൊയേഷ്യ ആദ്യ റൌണ്ടിൽ കരുത്ത രായ അർജന്റീനയെ തോല്പിച്ചാണ് ജൈത്രയാത്ര തുടങ്ങിയത് കാർട്ടറിൽ ആതിഥേയരായ റഷ്യയെ പെനാൽട്ടി ഷൂട്ടൌട്ടിൽ കീഴടക്കിയാണ് ക്രൊയേ ഷ്യയുടെ സെമി പ്രവേശനം

രോഹിത് ശർമ്മയുടെ സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യയുടെ ജയം

രാവിലെ ആറുമണിയോടെയായി രുന്നു അപകടം കാസർക്കോട് നിന്ന് മംഗലാപുരം ഭാഗത്തേക്ക് പോവുക യായിരുന്ന ജീപ്പ് ലോറിയിലിടിച്ചാണ് അപകടം കൂടുതൽ വിവരങ്ങൾ ലഭ്യ മായിട്ടില്ലെന്ന് പൊലീസ് അറിയിച്ചു ് ആറാമത് മലബാർ റിവർ ഫെസ്റ്റിവെലിന്റെയും ലോക കയാ ക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെയും പ്രചരണാർത്ഥം കോഴിക്കോട്ട് ബൈക്ക് റാലി സംഘടിപ്പിച്ചു കോഴിക്കോട്ടുനിന്ന് തുഷാരഗിരിയിലേക്കായിരുന്നു റാലി

സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു റോഡരികിലെ അനധികൃത കച്ചവടങ്ങൾ ഒഴിവാക്കാൻ പഞ്ചായത്തീരാജ് നിയമപ്രകാരം നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് സഹായധനം വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ജഗ്ജീവൻ റാം ദേശീയ പുരസ്കാരത്തിന് തൃശൂർ ജില്ലയിലെ രണ്ടു കർഷ കരെ തെരഞ്ഞെടുത്തു പട്ടിക്കാട് സ്വദേശി സിബി കല്ലിങ്കൽ ദേശീയ പുര സ്കാരത്തിനും തിരുവിലാമല സ്വദേശി രാജ്നാരായണൻ മേഖലാ പുര സ്കാരത്തിനും അർഹരായി

് ് ് ് ് ് വർഗ്ഗീയതയ്ക്കെതിരെയും മതാന്ധതയ്ക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഈ കാലഘട്ടത്തോട് ചെയ്യുവാനുള്ള ഏറ്റവും വലിയ ധർമ്മമെന്ന് മന്ത്രി ഡോക്ടർ കെ

വായനയില്ലായ്മയാണ് പുതുതലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്നും പറയേണ്ടിടത്ത് പറയാനും ഇടപെടേണ്ടിടത്ത് ഇടപെടാനുള്ള ആർജ്ജവം യുവതലമുറ കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എറണാ കുളം നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളെ ആദരിക്കാനായി ട ഹൈബി ഈഡൻ എം എൽ എ ഏർപ്പെടുത്തിയ എം എൽ എ അവാർഡ് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാന ഭരണത്തിന് നേതൃത്വം നൽകുന്ന സി പി ഐ എം ആയുധങ്ങൾ ഉറയിലിടാതെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരി ല്ലെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യസമിതി അംഗം പ്രൊഫസർ പി

പത്തനംതിട്ടയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പൊതു യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കെ ബാലൻ എം എം മണി എന്നിവർ സന്ദർശിച്ചു അഭിമന്യൂവിന്റെ പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെയും മന്ത്രിമാർ ആശ്വസിപ്പിച്ചു

കോഴിക്കോട് കൂമ്പാറ പുഷ്പഗിരിയിൽ ഇന്നലെ രാത്രി ടിപ്പർ ലോറി ബൈക്കിലിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു കൂമ്പാറ ഒടിയത്തി ങ്കൽ ജോജി ആണ് മരിച്ചത്

കണ്ണൂരിൽ നടന്ന ദേശീയ ആരോഗ്യ ദൌത്യം ജീവനക്കാരുടെ സംസ്ഥാന തല ഫുട്ബോൾ ടൂർണ്ണമെന്റിൽ മലപ്പുറം ജേതാക്കളായി

പ്രശസ്ത ഫോട്ടോഗ്രാഫറായിരുന്ന വിക്ടർ ജോർജ്ജിന്റെ ചരമ വാർഷികാചരണത്തിന്റെ ഭാഗമായി കേരള പത്രപ്രവർത്തക യൂണിയൻ ഇന്ന് കണ്ണൂരിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിക്കും ഇന്ത്യൻ മാധ്യമപ്രവർത്തനം ഭീതിയുടെ നിഴലിലോ എന്ന വിഷയത്തിലാണ് സെമിനാർ

ഇടുക്കിയിൽ മഴ വീണ്ടും ശക്തിയാർജ്ജിച്ചു